ചൈനക്ക് പുറത്ത് ആദ്യ കൊറോണ മരണം ഫിലിപ്പൈൻസിൽ റിപ്പോർട്ട് ചെയ്തു

ഡൽഹി തെരഞ്ഞെടുപ്പിൽ പ്രിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണം ഊർജ്ജിതം പ്രധാനമന്ത്രിയുടെ റാലി ഇന്ന് കിഴക്കൻ ഡൽഹിയിൽ

ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് ഇന്ന് കേരള നിയമസഭയിൽ തുടക്കമാകും

ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി ഫിലിപ്പീൻസിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്

രണ്ടാമതും വൈറസ് ബാധ സ്ഥിരീകരിച്ച കേരളത്തിന് എല്ലാ സഹായവും നൽകുമെന്ന് കേന്ദ്രം ഉറപ്പു നൽകി

സ്ഥിതിഗതികൾ ജാഗ്രതയോടെ നിരീക്ഷിക്കുകയ്ക്കുണെന്ന് കേന്ദ്രമന്ത്രി ഹർഷ വർദ്ധൻ അറിയിച്ചു തായ്ലന്റ് സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്നവരെയും വിമാന്ത്യാവളങ്ങളിൽ നിരീക്ഷിക്കുന്നുണ്ട് നേരത്തെ ചൈന ഹോങ്കോങ്ങ് എന്നിവ്പിടങ്ങളി്ൽ നിന്നെത്തുന്നവരെ മാത്രമാണ് വിമാനത്താവളങ്ങളിൽ പരീശോധന നടത്തിയിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാഹചര്യം വിലയിർുത്തിക്കൊണ്ടിരിക്കുകയാണെ ന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു രോഗത്ത്രെ ന്റെരിടാനുള്ള അടിയന്തര സാഹചര്യങ്ങൾ വിലയിരുത്താൻ ഡൽഹിയിൽ ഇന്നലെ പ്രത്യേക യോഗം ചേർന്നു ആരോഗ്യ കുടുംബക്ഷേമ മ്യ്ത്താലയം വിദേശ മന്ത്രാലയം വ്യോമയാനം ആഭ്യന്തരമന്ത്രാലയങ്ങളിൽ നീന്നുള്ള സെക്രട്ടറിമാരും വിവിധ സൈനിക ഏജൻസികളുടെ പ്രതിനിധികളും പങ്കെടുത്തു ചൈനയിലേക്കുള്ള യാത്ര ഉപേക്ഷിക്കണമെന്ന പുതിയ ജാഗ്രതാനിർദ്ദേശം കേന്ദ്രം പുറത്തിറക്കി

ഇവരുമായി സമ്പർക്കം പുലർത്തിയിരുന്ന ആളുകളെയും നിരീക്ഷിക്കുന്നുണ്ട്

ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി കെ

വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച രണ്ടു സ്ത്രീകളെ ഇന്നലെ അറസ്റ്റു ചെയ്തു കേരളത്തിൽ നിന്നുള്ളവരുടെ രക്ത സാമ്പിളുകൾ ആലപ്പുഴയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധിക്കാൻ സംവിധാനമായിട്ടുണ്ട് എല്ലാ പ്രധാന ആശുപത്രികളിലും കൊറോണ പ്രതിരോധ കേന്ദ്രങ്ങൾ തുറന്നു എല്ലാ ദിവസവും സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്

കൊറോണ വൈറസ് സംബന്ധിച്ച് വ്യാജവാർത്തകൾ പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് ഗവൺമെന്റിന്റെ ഈ നിർദ്ദേശം

കൈകൾ പൃത്തിയായി കഴുകണം ചൈനയിൽ ്നിന്നു വന്നിട്ടുള്ളവർ മുൻകരുതൽ ക്ട്രീർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ഡൽഹി എയിംസിലെ പ്രൊഫ്

ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ള കൂട്ടികളും വയോജനങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു

അമേരിക്കൻ ആരോഗ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചതിന് ശേഷം ജർമ്മൻ ആരോഗ്യമന്ത്രി ജെൻ സ്പാൻ ആണ് ഇക്കാര്യം അറിയിച്ചത്

കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു കെ യു

ഇന്നലെ മെഹ്റം നഗറിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗൃഹ സന്ദർശന പരിപാടി നടത്തി ബിജെപി അധ്യക്ഷൻ ജെ

നദ്ദ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിങ് പ്രകാശ് ജാവ്ദേക്കർ എന്നിവർ വിവിധ റാലികളിൽ പ്രസംഗിച്ചു കിരാലിയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജരിവാൾ റോഡ് ഷോ നടത്തി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയവും സജീവ പ്രചാരണത്തിനുണ്ട് കോൺഗ്രസ് നേതാവും ഹരിയാന മുൻ മുഖ്യമന്ത്രിയുമായ ഭൂപീന്ദ്രൻ ഹൂഡ അൽക ലാബ എന്നിവരും പ്രചാരണത്തിനെത്തി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സി

സീനിയർ അഡീഷണൽ ഡി സി പി ഗ്യാനേഷിന് കൃത്രക്ക് കിഴക്കൻ ഡൽഹിയുടെ അധിക ചുമതല നൽകി

ഹർജിയുമായി ബന്ധപ്പെട്ട് എല്ലാ കക്ഷികളുടെയും വാദം കേട്ട ശേഷം ഉത്തരവിറക്കുമെന്ന് ജസ്റ്റിസ് സുരേഷ് കെയ്ത്ത് പറഞ്ഞു വധശിക്ഷ നീട്ടിക്കൊണ്ടുപോകാൻ പ്രതികൾ നിയമവ്യവസ്ഥയെ ദുരുപയോഗം ചെയ്യുകയാണെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേഹ്ത്ത വാദിച്ചു

ഡി

എൽ എ മാർക്ക് ക്യാബിനറ്റ് പദവി നൽകുമെന്ന് കർണ്ണാടക മുഖ്യമന്ത്രി ബി

യെദ്യൂരപ്പ ബംഗളുരുവിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

കാൻകറിൽ പോലീസ് പട്രോളിംഗിനിടെ നടന്ന സ്ഫോടനത്തിൽ അതിർത്തി രക്ഷാ സേനയിലെ ജവാന് പരിക്കേറ്റു

എ

എ ആയുധ കേസുകളിൽ പ്രതിയായ മാവോയിസ്റ്റ് നേതാവ് അശുതോഷ് സിംഗ് ബിഹാറിലെ മുംഗർ ജില്ലയിൽ അറസ്റ്റിലായി

നിരോധിത സംഘടനയായ സി

ഐ മാവോയിസ്റ്റിന്റെ ലാഖിസരായ് മുംഗർ ജാമുയ് ജില്ലകളിലെ സജീവ പ്രവർത്തകനാണ് അശുതോഷ് സിംഗ്

ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ച് പത്ത് ദിവസം കൊണ്ട് വാദം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്

രണ്ടു വർഷത്തിലൊരിക്കൽ നടക്കുന്ന മേള പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും

നൈപുണ്യത്താൽ സമൃദ്ധമായ മനുഷ്യവിഭവശേഷിയുടെ അന്തരീക്ഷം രാജ്യത്ത് സൃഷ്ടിക്കാൻ പാഠ്യപദ്ധതിയിൽ തൊഴിൽ പരിശീലനം ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം കർണാടകയിലെ ഹുബ്ബാലിയിൽ പറഞ്ഞു

ഗവൺമെന്റ് നിയന്ത്രിത സേനയും റഷ്യൻ സഖ്യകക്ഷിയും ചേർന്ന് രാജ്യത്തിന്റെ വടക്കുപടിഞ്ഞാറൻ മേഖലയിലാണ് ആക്രമണം നടത്തിയത് സർമീൻ പട്ടണത്തിലെ ഒരേ കുടുംബത്തിൽപ്പെട്ട ഏഴുപേരും ബിന്നീഷ് പട്ടണത്തിലെ ഒരു കുട്ടിയും മരിച്ചതായാണ് റിപ്പോർട്ട്

ഭീകരാക്രമണം ചെറുക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി നടന്ന സംഭവമാണിതെന്ന് പോലീസ് അറിയിച്ചു

കുറ്റവാളികൾക്ക് കർശന ശിക്ഷ നൽകാനുള്ള പദ്ധതികൾ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പ്രതികരിച്ചു

ഏറ്റവും വലുതും ദൈർഘ്യമേറിയതുമായ പുസ്തകോൽസവമാണ് ഇകുഷേ ബുക്ക് ഫെസ്റ്റിവൽ

ജി അൻവർ ഖാൻ ദുബായിൽ പറഞ്ഞു